ജമ്മു കശ്മീരിലെ സി

എം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ സന്ദർശിക്കാൻ സീതാറാം യെച്ചൂരിക്ക് സുപ്രീംകോടതിയുടെ അനുമതി കശ്മീർ പ്രശ്നം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാ ണെന്നും വിദേശ രാജ്യങ്ങൾക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാല ഉപതെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവി ച്ചു

ലക്നൌ ദേശീയ സീനിയർ അത്ലറ്റിക്സിൽ കെ

ഈ വിഷയത്തിൽ മറുപടി അറിയിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും ജമ്മു കശ്മീർ ഭര ണകൂടത്തിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു

ജമ്മു കശ്മീരിലെ നിയന്ത്രണങ്ങൾമൂലം മാധ്യമ സ്വാതന്ത്രൃം തടസ്സപ്പെടുന്നുവെന്ന് ഹർജിയിലും സുപ്രീം കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരാഴ്ചക്കകം ഈ വിഷയത്തിൽ മറു പടി നൽകണം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യ ക്ഷനായ ബഞ്ചാണ് ഹർജി പരിഗണിച്ചത് കശ്മീർ ടൈംസ് ദിനപത്രത്തിന്റെ പത്രാധിപർ അനുരാധ ഭാസിൻ ആണ് മാധ്യമ നിയന്ത്രണത്തിനെതിരെ ഹർജി നൽകിയ ത് ഇന്റർനെറ്റ് ലാൻഡ്ലൈൻ സൌകര്യങ്ങളും മറ്റ് ആശയ വിനിമയ സംവിധാനങ്ങളും പുനഃസ്ഥാപിക്കണ മെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ജമ്മു കശ്മീരിലെ സി

എം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ സന്ദർശിക്കാൻ സി

ഐ

ഒരു പൌരന് രാജ്യത്തിന്റെ ഏത് ഭാഗത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും മറ്റൊരിടത്ത് കഴിയുന്ന സുഹൃ ത്തിനെ കാണാൻ അവകാശമുണ്ടെന്നും നിരീക്ഷിച്ചാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചിന്റെ വിധി യാത്ര രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാക രുതെന്ന ഉപാധിയോടെയാണ് ഹേബിയസ് കോർപസ് ഹർജി കോടതി അനുവദിച്ചത് ജമ്മു കശ്മീർ സന്ദർശനത്തിനെത്തിയ യെച്ചൂരിയെ മുമ്പ് രണ്ടുതവണ അനുമതി നൽകാതെ തിരിച്ചയച്ചതി നെത്തുടർന്നാണ് കോടതിയെ സ്മീപിച്ചത് കശ്മീരിലെ മാതാപിതാക്കളെ സന്ദർശിക്കാൻ അനുമതി ആവശൃപ്പെട്ട് ഡൽഹിയിൽ നിയമ പ്രിദ്യാർത്ഥിയായ കശ്മീരി യുവാ വിന്റെ ഹേബിയസ് കോർപസ് ഹർജിയും കോടതി അനു വദിച്ചു കൾമീർ പ്രശ്നം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാ ണെന്നും പാക്കിസ്ഥാനോ മറ്റ് വിദേശ രാജ്യങ്ങൾക്കോ അതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും രാഹുൽ ഗാന്ധി എം

ജമ്മു കശ്മീരിലെ അക്രമ സംഭ വങ്ങൾ പാക്കിസ്ഥാന്റെ പിന്തുണയോടെയാണ് നടക്കു ന്നതെന്നും ആ രാജ്യം ലോകത്തിൽ ഭീകരത പ്രോത്സാ ഹിപ്പിക്കുന്ന വലിയൊരു ശക്തിയാണെന്നും രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു ജമ്മു കശ്മീരിൽ മനുഷ്യാവകാശ ലംഘനം നടക്കു ന്നതായി ആരോപിച്ച് പാക്കിസ്ഥാൻ ഐക്യരാഷ്ട്ര സഭയ്ക്ക് കത്തെഴുതിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്

ഇതോടെ പത്രികാ സമർപ്പണത്തിന്റെ സമയവും ആരംഭിച്ചു

ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വൈകിട്ട് മുന്നണി യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്

എഫിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് ചർച്ചകൾ തുടരുകയാണ്

എ സ്ഥാനാർത്ഥിയെ മറ്റുന്നാൾ പ്രഖ്യാപിച്ചേക്കും പാലായിലെ യു

എഫ് സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല പറഞ്ഞു കേരളാ കോൺഗ്രസ് എമ്മിലെ ഇരു വിഭാ ഗങ്ങൾക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയായിരിക്കും പാലായിൽ മത്സരിക്കുക

എഫ് ആവർത്തിക്കുമെന്ന് ചെന്നിത്തല തിരുവനന്തപുരത്ത് അവകാശപ്പെട്ടു കേരളാ കോൺഗ്രസ് എമ്മിലെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കുമെന്നാണ് വിശ്വാസമെന്ന് മുൻ മുഖ്യ മന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു അവർ ആവശ്യപ്പെട്ടാൽ കോൺഗ്രസ് പ്രശ്നത്തിൽ ഇടപെടുമെന്ന് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു പാലയടക്കം വരാനിരിക്കുന്ന ആറ് ഉപ തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ യു ഡി എഫ് സജ്ജ മായിക്കഴിഞ്ഞുവെന്നും ഉമ്മൻചാണ്ടി വൃക്തമാക്കി വിജയസാധ്യത പരിഗണിച്ചാവും പാലായിലെ സ്ഥാനാർത്ഥി നിർണ്ണയമെന്ന് ജോസ്

മാണി പറഞ്ഞു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്പലു തലങ്ങളിൽ ആശയ വിനിമയം നടന്നുവരുന്നതായും പ്രഖ്യാപനം ദിവസ ങ്ങൾക്കകം ഉണ്ടാകുമെന്നും അദ്ദേഹം കോട്ടയത്ത് പറ ഞ്ഞു

കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും പ്രളയത്തെത്തുടർന്ന് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ ആവശ്യമായ ഫണ്ട് ഗവൺമെന്റിന്റെ പക്കലില്ലെന്ന് നിവേദനത്തിൽ പറയു ന്നു ജൽജീവൻ മിഷൻ നടപ്പാക്കാൻ അടുത്ത മാസം ബംഗളുരുവിൽ സംഘടിപ്പിക്കുന്ന പ്രാദേശിക സെമിനാ റിൽ പദ്ധതി അവതരിപ്പിക്കുമെന്ന് മന്ത്രി വൃക്തമാക്കി കേരളത്തിന്റെ കാർഷികരംഗത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പിടുന്നതിൽനിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറ ണമെന്ന് സംസ്ഥാനതല കാർഷിക വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ഇത്തരം കരാറുകളിൽ ഏർപ്പെ ടുന്നതിനുമുമ്പ് പാർലമെന്റിൽ ചർച്ച നടത്തുകയും സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന നടത്തുകയും വേണമെന്ന് യോഗ തീരുമാനങ്ങൾ വെളിപ്പെടുത്തിയ മന്ത്രി വി എസ് സുനിൽകുമാർ തിരുവനന്തപുരത്ത് ആവ ശ്യപ്പെട്ടു

വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്ന വിളകൾക്ക് കൃഷി സബ്സിഡി നൽകില്ലെന്ന നിതി ആയോഗ് തീരുമാനം ശാസ്ത്രീയ നിലപാടല്ലെന്നും യോഗം വ്യക്തമാക്കി വെള്ളം കയറി കൃഷി നശിച്ചാൽ ഇൻഷുറൻസ് നൽകി ല്ലെന്ന നിലപാട് മാറ്റണമെന്ന് യോഗം ആവശ്യപ്പെട്ടതായി മന്ത്രി അറിയിച്ചു വിദേശങ്ങളിലെ തൊഴിൽ തട്ടിപ്പുകളും ചൂഷണങ്ങളും തടയുന്നതിനും സുരക്ഷിതവും നിയമപരവുമായ കുടി യേറ്റം സാധ്യമാക്കുന്നതിനും തിരുവനന്തപുരത്ത് സെമി നാർ സംഘടിപ്പിക്കും കേന്ദ്ര വിദേശകാര്യ വകുപ്പും നോർക്ക വകുപ്പും സംയുക്തമായി നാളെയും മറ്റന്നാളു മാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് അനധ്ധികൃത റിക്രൂ ട്ട്മെന്റ് വ്യാജ വിസ തട്ടിപ്പ് ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിക്കൽ എന്നിവ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തി ലാണ് സെമിനാർ നടത്തുന്നത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ രണ്ടുദിവസത്തെ സന്ദർശനത്തിന് നാളെ രാത്രി കൊച്ചിയിലെത്തും മറ്റന്നാൾ രാവിലെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ സംഘടിപ്പിക്കുന്ന ന്യൂസ് കോൺക്ലേവ് പരിപാടിയിൽ ജാവ്ദേക്കർ മുഖ്യ പ്രഭാ ഷണം നടത്തും ഉച്ചയോടെ അദ്ദേഹം പൂനെയിലേക്ക് പോകും കേന്ദ്ര ശുചിത്വ കുടിവെള്ള മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് പൊതുജനാഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് ആരംഭിച്ച ജില്ലാതല സർവേക്ക് മലപ്പുറത്ത് തുടക്കമായി രാജ്യത്തെ എല്ലാ ജില്ലകളിലെയും ഗ്രാമ പഞ്ചായത്തുകളിലെ വിവിധ ശുചിത്വ ഘടകങ്ങൾ ഒരു സ്വതന്ത്ര ഏജൻസിയിലൂടെ വിലയിരുത്തി റാങ്ക് നൽകുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം

ലക്നൌവിൽ ദേശീയ സീനിയർ അത്ലറ്റിക് മീറ്റിൽ മലയാളി താരം കെ

സംസ്ഥാനത്ത് ശനിയാഴ്ചവരെ കനത്ത മഴക്ക് സാധൃ തയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവന ന്തപുരത്ത് അറിയിച്ചു അതിശക്തമായ മഴ കണക്കിലെ ടുത്ത് എട്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപി ച്ചു ആലപ്പുഴ എറണാകുളം ഇടുക്കി മല്പ്പുറം കോഴി ക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് കനത്ത മഴ പ്രതീക്ഷിക്കുന്നത് നാളെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളൊഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടായിരിക്കും സ്പ്ലൈകൊ ഓണം മാർക്കറ്റുകളുടെയും ജില്ലാ ഫെയ റുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവ നന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ മുഖൃമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

സൌത്ത് ബസാർ ഫ്ളൈഓവർ മേലെ ചൊവ്വ അടിപ്പാത സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് എന്നീ പദ്ധതി കൾക്കാണ് അംഗീകാരം നൽകിയതെന്ന് മന്ത്രി കണ്ണൂ രിൽ പറഞ്ഞു

സംസ്ഥാനത്ത് ജലവിഭവ വിവര വിനിയോഗ സംവി ധാനം മൂന്നുമാസത്തിനകം നടപ്പാക്കാൻ തിരുവനന്ത പുരത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചേംബറിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

ഉപഗ്രഹ സഹായ ത്തോടെ സംസ്ഥാനത്തിന്റെ ജലനിലയെക്കുറിച്ചും ഭൂഗർഭ ജലവിതാനത്തെക്കുറിച്ചും മനസിലാക്കാനും അത് ഫലപ്രദമായി വിനിയോഗിക്കാനും സോഫ്റ്റ്വെയർ സഹായകമാകും സർഫാസി നിയമ പ്രകാരം എടുത്ത നടപടികൾ കാ രണം സംസ്ഥാനത്ത് ഉണ്ടായ അവസ്ഥാ വിശേഷങ്ങളെ കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി എ സ് ശർമ്മ എം

എയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ തെളിവെടുപ്പ് നാള്ളെ രാവി ലെ കണ്ണൂർ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലക ളിലുള്ളവർക്ക് യോഗത്തിൽ പങ്കെടുത്ത് പരാതികളും നിർ ദേശങ്ങളും അറിയിക്കാം ഇന്ന് അയ്യങ്കാളി ജയന്തി

പൊതുനിരത്തിലൂടെ നടക്കാനും പൊതു കിണറുക ളിൽ നിന്ന് വെള്ളമെടുക്കാനും കേരളത്തിലെ അധസ്ഥിത ജനതക്ക് സ്വാതന്ത്രൃം നേടിക്കൊടുത്ത മഹാനായിരുന്നു അയ്യങ്കാളി വാഹന നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സിനിമാ താരങ്ങളായു അമലാ പോളിനും ഫഹദ് ഫാസിലിനും എതിരായ കേസുകൾ അവസാനിപ്പിക്കുകയാണെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു അമലാ പോൾ വ്യാജ വിലാ സത്തിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തതെന്ന് കണ്ടെ ത്തിയിട്ടുണ്ട് ഇക്കാര്യ ത്തിൽ പുതു ച്ചേരി ഗവൺമെൻാണ് നടപടിയെടുക്കേണ്ടത്